മത നിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഡി എഫും ബി ജെ പിയും ഇന്ന് സമരം നടത്തും

എൽ ക്രിക്കറ്റിൽ സൺ റൈസേഴ്സ് ഹൈദരബാദിനും മുംബൈ ഇന്ത്യൻസിനും വിജയം

കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധികളുടെ നടുവിലാണ് ഇത്തവണ കേരളപ്പിറവി ദിനം കടന്നുവരുന്നത് രണ്ട് വർഷത്തെ പ്രളയത്തിൽ നിന്ന് അതിജീവനത്തിന്റെ പാതയിലേക്ക് കേരളം നീങ്ങുന്ന സന്ദർഭത്തിലാണ് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം സംസ്ഥാനത്തും കോവിഡ് മഹാമാരി നിഴൽ പരത്തിയത് വേർതിരിവുകൾക്കും ഉച്ചനീചത്വങ്ങൾക്കും അതീതമായി മലയാളിയുടെ ഒരുമയായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു

ഭാഷയ്ക്കും സംസ്കാരത്തിനും സംസ്ഥാനത്തിനും വേണ്ടി പുനർപ്പണം ചെയ്യുന്ന സന്ദർഭമായി ഈ കേരളപ്പിറവിയെ കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഭാഷാ പണ്ഡിതർ ഭരണഭാഷയെ അധികരിച്ച് പ്രഭാഷണങ്ങളും നടത്തും

ഓഫീസുകളിൽ ഭരണരംഗത്തെ അഞ്ച് ഇംഗ്ലീഷ് വാക്കുകളും സമാന മലയാള പദങ്ങളും പ്രദർശിപ്പിക്കാൻ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകി രുര പ്രമുഖ സാഹിത്യകാരനും പത്രപ്രവർത്തകനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുഭാഷ് ചന്ദ്രൻ ആകാശവാണിയോട്

കോവിഡ് വ്യാപനത്തെത്തുടർന്ന് മാസങ്ങളായി ബീച്ചുകളും പാർക്കുകളും മ്യൂസിയങ്ങളും അടച്ചിട്ടിരിക്കുകയായിരുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ബീച്ചുകളിലും പാർക്കുകളിലും പ്രവേശനവും മറ്റ് വിനോദ പരിപാടികളും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചും നിയന്ത്രണങ്ങളോടെ ഇന്ന് സഞ്ചാരികൾക്കായി തുറന്ന് കൊടുക്കും പ്രവേശനത്തിനും വാഹന പാർക്കിംഗിനും ഫീസ് ഈടാക്കിയായിരിക്കും ബീച്ച് തുറന്ന് കൊടുക്കുന്നത് രംഭ കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രം സഞ്ചാരികൾ ഇടുക്കിയിൽ എത്തണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശിച്ചു ഇടുക്കി ഡാം നിർമ്മിക്കാൻ സ്ഥലം കാണിച്ച ആദിവാസി ഗോത്രത്തലവൻ ചെമ്പൻ കൊലുമ്പന്റെ നവീകരിച്ച സമാധി സ്മാരകം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോവിഡ് പ്രതിസന്ധിയിൽ തകിടം മറിഞ്ഞ കേരളത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ടൂറിസത്തിന് കഴിയുമെന്ന് മന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു

മിക്ക ജില്ലകളിലും കോവിഡ് വ്യാപനം നിയന്ത്രണവിധേയമാകാത്ത പശ്ചാത്തലത്തിലാണ് രണ്ടാഴ്ച കൂടി നിരോധനാജ്ഞയും നിയന്ത്രണവും നീട്ടിയത്

രംഭ കൊവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച ഇടപെടലുകളാണ് ആയുർവേദ കോളേജുകൾ നടത്തുന്നതെന്ന് മന്ത്രി കെ

കൊവിഡിനു ശേഷം ആരോഗ്യ സംരക്ഷണം പ്രധാനമാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മന്ത്രി പറഞ്ഞു

ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി

മഞ്ചേശ്വരം മുതൽ പാറശ്ശാല വരെ ദേശീയപാതയിലും അല്ലാത്ത ഇടങ്ങളിൽ സംസ്ഥാന പാതയിലും കോവിഡ് മാനദണ്ഡങ്ങൾപാലിച്ച് ഓരോ അമ്പത് മീറ്ററിൽ അഞ്ചുപേർ എന്ന രീതിയിലാണ് സമരം കോഴിക്കോട് ജില്ലാതല സമരം നടക്കാവ് വണ്ടിപ്പേട്ടയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാനത്തെ ആദ്യ എക്സലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജാണ് കോഴിക്കോട്ടേത്

രും മലപ്പുറം കവളപ്പാറ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പൊലീസ് ഉദ്യോഗസ്ഥർ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സ്പെഷൽ ഓപറേഷൻ മെഡലിന് അർഹരായി

രും പെട്ടിമുടി ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് അനുവദിച്ച ഭൂമിയുടെ പട്ടയ വിതരണവും വീടുകളുടെ തറക്കല്ലിടലും ഇന്ന് കുറ്റിയാർവാലിയിൽ മന്ത്രി എം

മരിച്ചവരുടെ ആശ്രിതർക്ക് അഞ്ച് സെന്റ് വീതം ഭൂമിയാണ് കുറ്റിയാർവാലിയിൽ നൽകുന്നത് എട്ട് കുടുംബങ്ങൾക്ക് സ്ഥലത്ത് കണ്ണൻ ദേവൻ കമ്പനി വീട് നിർമ്മിച്ച് നൽകും

എൽ ക്രിക്കറ്റിൽ ഇന്നലെ സൺ റൈസേഴ്സ് ഹൈദരബാദിനും മുംബൈ ഇന്ത്യൻസിനും വിജയം ദുബായിൽ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ഒമ്പത് വിക്കറ്റിനാണ് മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചത്

അബുദാബിയിൽ ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് കിംഗ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെയും ദുബായിൽ രാത്രി ഏഴരയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും ദേഴ യാത്രക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് യാത്രാ സംവിധാനം ഒരുക്കുന്ന മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രവർത്തനമാരംഭിക്കും മന്ത്രി എ

ആദ്യഘട്ടത്തിൽ കൊച്ചി കോർപ്പറേഷൻ പരിധിയിലാണ് അതോറിറ്റിയുടെ പ്രവർത്തനം റെയിൽവേ മെട്രോ റെയിൽ ബസ് ടാക്സി ഓട്ടോറിക്ഷ സൈക്കിൾ തുടങ്ങിയ ഗതാഗത മാർഗ്ഗങ്ങൾ ആദ്യഘട്ടത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു ടിക്കറ്റിൽ ഏത് ഗതാഗത മാർഗ്ഗവും ഉപയോഗിച്ച് യാത്ര ചെയ്യാം രും വാതിൽപ്പടിയിൽ കുടിവെള്ളം എത്തിക്കുന്ന ജല അതോറിറ്റിയുടെ ജീവൻ ധാര പദ്ധതിയ്ക്ക് ഇന്ന് തുടക്കമാകും പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ പൈലറ്റ് പദ്ധതി മന്ത്രി കെ

കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്

പാലക്കാട് മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരിച്ച പാൽ പരിശോധനാ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രും വയനാട് മുത്തങ്ങ ചെക്ക്പോസ്റ്റിൽ കർണ്ണാടകത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഒരു ടണ്ണിലേറെ പാൻ മസാല എക്സൈസ് പിടികൂടി മലപ്പുറം സ്വദേശികളായ രണ്ട് പേരെ കസ്റ്റഡിയിലെടുത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കൈമാറി രും ഏഴാമത് സാമ്പത്തിക സെൻസസ് പ്രവർത്തനങ്ങൾ കൊല്ലം ജില്ലയിൽ ആരംഭിച്ചു കോമൺ സർവീസ് സെന്റർ എന്ന സ്ഥാപനത്തിനാണ് ജില്ലയിലെ വിവരശേഖരണത്തിന്റെ ചുമതല ജില്ലാ കലക്ടർ ചെയർമാനായ കോ ഓഡിനേഷൻ സമിതിയാണ് ജില്ലയിലെ സർവ്വെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്